രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമടക്കം സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ശ്രീദേവിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു സി പി ഐ എം സംസ്ഥാനസമ്മേളനം റെഡ് വോളന്റി യർ മാർച്ചോടെ വൈകീട്ട് സമാപിക്കും ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രികളെ മിക

ഭിന്ന ശേഷിക്കാരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനും പ്രകൃതിദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ എല്ലാവർക്കും പ്രാപ്ത മാക്കാനും മുന്നോട്ടു വരണമെന്ന് മുംബൈയിൽ അടുത്ത യിടെ ശാസ്ത്രലോകത്തോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ പറഞ്ഞു ശ്രവണവൈകല്യം നേരിടുന്നവർക്ക് സഹായകമായ ഡിജി റ്റൽ ഉപകരണം വികസിപ്പിച്ച ഒരു യുവാവിന്റെ ഉദാഹരണം എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി നിർമ്മിതബു ദ്ധിക്ക് ഈ മേഖലയിൽ കണക്കറ്റ സംഭാവനകൾ നൽകാനാ കുമെന്നും അഭിപ്രായപ്പെട്ടു

കാലതാമസമൊഴിവാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ യു എ യിലെ നയതന്ത്രകാര്യാലയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നല്കി

നാലാം വയസ്സിൽ തുണൈ വൻ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായാണ് അഭിനയ രംഗത്തെത്തിയത്

ഈ വർഷം സീറോ എന്ന ചിത്രത്തിൽ അതിഥി റോളിൽ ശ്രീദേവിയായി തന്നെ അവർ അഭിനയിച്ചു

സഗ്മ തൂഫാൻ ഹിമ്മത്ത് വാല മിസ്റ്റർ ഇന്ത്യ ചാന്ദ്നി നാഗ്നി മാവാലി തുടങ്ങിയവി ശ്രീദേവി അഭിനയിച്ച പ്രമുഖ ചിത്രങ്ങളാണ്

പൂമ്പാറ്റയി ലൂടെ മലയാളത്തിലെത്തിയ അവർക്ക് ആ ചിത്രത്തിലെ അഭി നയത്തിന് മികച്ച ബാലതാരത്തിന് നൽകുന്ന സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ങ്ങളും ആറ് ഫിലിംഫെയർ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്

അവരുടെ മരണം കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം തകർത്തായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു മരണവാർത്ത ഞെട്ടിച്ചതായും രാഷ്ട്രപതി അറിയിച്ചു ചലച്ചിത്രരംഗത്തെ അപൂർവ്വപ്രതിഭയായിരുന്നു ശ്രീദേവിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു അവരുടെ അകാലമരണമുണ്ടാക്കിയ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം പങ്കുചേരുന്നതായി അദ്ദേഹം അറിയിച്ചു

ഇന്ത്യൻ ചലച്ചി ത്രലോകത്തിന് പരിഹരിക്കാനാകാത്ത നഷ്ടമാണ് അവ രുടെ മരണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു

സംസ്ഥാനകമ്മറ്റി അംഗ ങ്ങളെ അല്പസമയത്തിനകം തെരഞ്ഞെടുക്കും

മുതിർന്ന ചില നേതാക്കളെ ഒഴിവാക്കിയേക്കും കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിസ്ഥാനത്ത് തുട രുമെന്നാണ് സൂചന

രാജ പറഞ്ഞു കേര ളത്തിലെ മുന്നണി വിപു ലീകരണത്തിൽ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന തീരുമാനമാകും പാർട്ടിയെടുക്കുകയെന്നും അദ്ദേഹം കൊച്ചിയിൽ പറ ഞ്ഞു

മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ കൊല്ലം കലക്ടർക്കും റൂറൽ എസ് പിക്കും കമ്മീഷൻ നിർദ്ദേശം നല്കി

മതസ്പർദ്ധ വളർത്തുന്ന പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയെന്ന കേസിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പുലർച്ചെ ഹൈദരാബാദ് വിമാനത്താവളത്തിലായിരുന്നു അറസ്റ്റ്

ഒരു വർഷം നീളുന്ന പരിപാടികളോടെയാണ് ചലച്ചിത്ര അക്കാദമി നവതി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്

സാങ്കേതികവിദ്യയും മെച്ച പ്പെട്ട മേൽനോട്ടവും ഈ പ്രശ്നം നേരിടുന്നതിന് ആവശ്യ മാണെന്നും കോൺഫെഡറേഷൻ പ്രസിഡണ്ട് ശോഭന കാമി നേനി ന്യൂഡൽഹിയിൽ പറഞ്ഞു സാമ്പത്തികമേഖലയിലെ പ്രശ്നങ്ങൾ നേരിടുന്ന തിന് ഗവൺമെന്റും വ്യവസായവും ത്വരിതഗതിയിൽ പ്രവർത്തിക്കണമെന്നും അവർ പറഞ്ഞു

എസ് റാവത്ത് കൊൽക്കത്തയിൽ പറഞ്ഞു ബാങ്കുകളുടെ സ്ഥകാര്യ വത്ക്കരണമാണ് തട്ടിപ്പ് തടയാൻ ദീർഘകാല നടപടി യായി കാണേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പുരുഷ വിഭാഗത്തിൽ മറ്റു മത്സരങ്ങളിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശിനെയും സർവീസസ് പഞ്ചാബിനെയും റെയിൽവേസ് കർണാടകയെയും നേരിടും വനിതാ വിഭാഗ ത്തിൽ കർണാടകയും റെയിൽവേസും വെസ്റ്റ് ബംഗാളും മഹാരാഷ്ട്രയും തെലങ്കാനയും തമിഴ്നാടും തമ്മി ലാണ് മത്സരം

ആറ്റുകാൽ പൊങ്കാ ലയ്ക്ക് മുന്നോടിയായി തിരുവനന്തപുരം നഗരത്തിലെ ആൾനൂഴികൾ ശുചിയാക്കുന്നതിന് ബൻഡിക്കൂട്ട് എന്നുപേ രിട്ട ഈ യന്ത്രമനുഷ്യനെ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി മാത്യു ടി